കോൺഗ്രസ്സ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

മൂന്ന് ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾ ടോക്കിയോ ഒളിമ്പിക്സിൽ ബെർത്ത് ഉറപ്പിച്ചു

സംസ്ഥാനം അതീവ ജാഗ്രതയിൽ

ക്ട്രള്ത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പൊതുപ്പരിപാടികൾ നിർത്തിവയ്ക്കും നിയന്ത്രണം ഈ മാസം മുഴുവൻ തുടരാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു അങ്കണവാട്ടി മുതൽ ഏഴാം ക്ലാസ് വരെ അവധി നൽകി

രോഗം സംശയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി

മാസ്ക്കുകളുടെ വില കൂട്ടുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ആരോഗൃമന്ത്രി കെ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

നിരവധി രാജ്യങ്ങളിൽ കൊറോണ വൈറസ് നിലയുറപ്പിച്ചതായും സ്ഥിതി ഏറെ ഭീതിജനകമാണെന്നും ഡയറക്ടർ ജനറൽ ടെട്രോസ് അഥാനൊം ഗബ്രിയാസസ് പറഞ്ഞു

യാത്രികരെ വിദഗ്ധ മെഡിക്കൽ സംഘം പരിശോധിച്ചു

ഇറാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ വിദഗ്ധ മെഡിക്കൽ സംഘം വ്യോമ സംഘം ഇന്ത്യൻ അധികൃതർ എന്നിവരുടെ സഹകരണത്തിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ നന്ദി അറിയിച്ചു ഇറാനിൽ കുടുങ്ങിയ ശേഷിക്കുന്ന ഇന്ത്യാക്കാരെ തിരിച്ചെത്തിക്കാൻ സർക്കാർ പരിശ്രമിക്കുന്നതായി കേന്ദ്രമന്ത്രി അറിയിച്ചു

വിമാന്ത്താവളങ്ങളിൽ എഴുന്നൂറോളം പേരെ പരിശോധിച്ചതായി ദേശ്രീയ് ആരോഗ്യ മിഷൻ ഡയറക്ടർ എസ്

അയൽരാജ്യങ്ങളിൽ നിന്നുള്ള വൈറസ് ബാധ തടയാൻ അതിർത്തിയിലെ റോഡുകളിലും മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചതായി അദ്ദേഹം പറഞ്ഞു

ദുബായിൽ നിന്നും ഇന്ത്യയിലെത്തിയ സ്ത്രീയിലും പുരുഷനിലും ഇന്നലെയാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജാഗരൂകരാകണമെന്നും സംസ്ഥാന ആരോഗൃ മന്ത്രി രാജേഷ് തോപെ പറഞ്ഞു

അതിർത്തികടന്നുള്ള ജനസഞ്ചാരം നിരോധിച്ചതായി സംസ്ഥാന ആഭൃത്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു ഉത്തരവ് കർശറ്റ്മായി നടപ്പാക്കാൻ പൊലീസ് ജില്ലാ ഭരണകൂടം അസം ഗ്ലൈഫിൾസ് കസ്റ്റംസ് വിഭാഗങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ്നിർദ്ദേശം നൽകി

നിലവിലുള്ള യാത്രാ നിയന്ത്രണങ്ങൾക്കു പുറമേയാണിതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഏറ്റവും പ്രധാനം പൊതുജന ആരോഗ്യമാണെന്നും അതിനാൽ ഈ നടപടി അത്യാവശ്യമാണെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു

കൊറോണ വൈറസ് ബാധിച്ച നഗരത്തിലേക്കുള്ള പ്രസിഡന്റിന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഹ്യൂബയിലെയും വുഹാനിലെയും രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി

എ മാർ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കടന്നതോടെയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ്സ് സർക്കാർ പ്രതിസന്ധിയിലായത്

കഴിഞ്ഞ രാത്രി വൈകി വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിലാണ് മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചത്

എ മാരും മുൻ കോൺഗ്രസ്സ് എം

രാഷ്ട്രപതി ഭവനിലെ പതിവ് ആഘോഷപരിപാടികൾ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറ്റ് കേന്ദ്രമന്ത്രിമാർ ബി

പി അധ്യക്ഷൻ ജെ

കൊറോണ വൈറസ് വ്യാപിക്കുന്നത് ചെറുക്കാൻ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്ന് ലോകത്തെങ്ങുമുള്ള വിദഗ്ദ്ധർ ചൂണ്ടികാട്ടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

ഇതിലൂടെ നിലവിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെങ്കിലും സമത്വത്തിലേക്കുള്ള പുരോഗതി ഉറപ്പ് വരുത്തുന്നില്ല

എന്നാൽ ക്കൊറ്റോണ് ബാധയുടെ പശ്ചാത്തലത്തിൽ പ്രതിനിധികളെ സ്പൂർയോർക്കിലേക്ക് അയയ്ക്കരുതെന്ന് അംഗരാഷ്ട്രട്ങളോട് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയ്ക്കും ഗുട്ടറ്സ് ആവശ്യപ്പെടുകയായിരുന്നു

സൌദി അറേബൃയും റഷ്യയുമായുള്ള കിടമത്സരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം എണ്ണ വിപണി നഷ്ടത്തിലായിരുന്നു

ജോർദ്ദാനിലെ അമ്മാനിൽ നടക്കുന്ന ഏഷ്യൻ യോഗൃതാ മത്സരങ്ങളുടെ സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെയാണ് മേരികോമും അമിതും ഒളിമ്പിക് യോഗ്യത ഉറപ്പിച്ചത്

കസാഖിസ്ഥാനിലെ സാൻസയാ അബ്ദുമാലിക്കാണ് ഹരികയുടെ എതിരാളി ഹരിക നാല് പോയിന്റ് നിലനിർത്തി ബൾഗേറിയയിലെ അന്റോണേറ്റ സ്റ്റെഫാനോവയോടാണ് എട്ടാം റൌിൽ ഹരിക ഇന്ന് മത്സരിക്കുന്നത്

ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് പ്രചാരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്